ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മാതൃകാ പെരുമാറ്റ ചട്ടത്തിൽ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാ റാം മീണ വിളിച്ച സർവകക്ഷിയോഗം ഇന്നു തിരുവനന്തപുരത്ത്

ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന ടിക്കാറാം മീണയുടെ നിർദേശം ഇതിനകം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പിന് കാരണമായിട്ടുണ്ട്

പിയും കോൺഗ്രസും നീക്കത്തെ നിശിതമായി വിമർശിച്ചു ശബരിമല വിഷയം സാമുദായിക ധ്രുവീകരണ മുണ്ടാക്കുന്ന തരത്തിൽ രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിച്ചാൽ അത് ചട്ടലംഘനമാകുമെന്ന് ടിക്കാ റാം മീണ ഇന്നലെയും വ്യക്തമാക്കി മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പാക്കാൻ കമ്മീഷൻ ശ്രമിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ പെരുമാറ്റ ച്ചട്ടലംഘനമായി കണക്കാക്കി നടപടിയെടുക്കാൻ ജില്ലാ കലകൂർമാർക്ക് നിർദേശം നൽകിയതായും മീണ പറഞ്ഞു

സ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് പി കൃഷ്ണ ദാസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ പാടില്ലെന്ന മീണയുടെ നിർദ്ദേശം അധി കാര ദുർവിനിയോഗമാണെന്ന് പരാതിയിൽ പറയുന്നു

രാഹുൽഗാന്ധി ഇന്ന് കേരളത്തിൽ എത്തും നാഗർകോവിലിൽ നിന്ന് വൈകിട്ട് മൂന്നരയോടെ തിരുവനന്തപുരത്തെത്തുന്ന രാഹുൽഗാന്ധി ഹെലി കോപ്റ്ററിൽ കന്യാകുമാരിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടു ക്കാൻ യാത്ര തിരിക്കും തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയശേഷം കൊച്ചി യിലേക്കും പിന്നീട് തൃശൂരേക്കും യാത്രയാവും നാളെ രാവിലെ തൃപ്രയാ റിൽ ഫിഷർമെൻ പാർലമെന്റ് പരിപാടിയിൽ പങ്കെടുത്തശേഷം അദ്ദേഹം കണ്ണൂരേക്ക് പോകും

കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീടു കൾ സന്ദർശിച്ചശേഷം രാഹുൽഗാന്ധി വൈകിട്ട് അഞ്ചിന് കോഴിക്കോട് ബീച്ചിൽ ജനമഹാറാലി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഡൽഹിയിലേക്ക് മടങ്ങും രാഹുൽഗാന്ധിയുടെ സന്ദർശനത്തോടെ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ തീരുമാനമായേക്കു മെന്നാണ് വിലയിരുത്തൽ ഉമ്മൻചാണ്ടിയുടെയും മുല്ലപ്പള്ളിയുടെയും കെ

വേണുഗോപാലിന്റെയും മത്സരകാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാ യാലേ പട്ടിക പൂർത്തീകരിക്കാനാവൂ

വെള്ളിയാഴ്ച ഡൽഹിയിൽ ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥികളെ അന്തിമമായി തീരു മാനിക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചന അതിനു കഴിഞ്ഞില്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണ്ണയം അടുത്തയാഴ്ചത്തേക്ക് നീണ്ടേക്കും ഇടതുമുന്നണിയുടെ മണ്ഡലം കൺവെൻഷനുകൾ നാളെ പൂർത്തിയാകും

കോൺഗ്രസിലെയും ബി ജെ പിയിലെയും സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ പ്രചാരണ രംഗത്ത് നേരത്തെതന്നെ സജീവമാകാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് നാളെ വയനാട് ലോക്സഭാ മണ്ഡലം കൺവൻഷൻ മുക്കത്ത് നടക്കും ് ് ് ് ് കോട്ടയത്തുചേർന്നു ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തെകു റിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ ശരിയല്ലെന്ന് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കി മണ്ഡല തലത്തിലെ അഭിപ്രായരൂപീകരണത്തിൽ കിട്ടിയ പട്ടി കയിലെ പേരുകൾ യോഗം ഏകകണ്ഠമായി കേന്ദ്ര കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യുകയായിരുന്നുവെന്ന് ബി ജെ പി വാർത്താകുറിപ്പിൽ വ്യക്തമാക്കി ഈ ശുപാർശയിൽ കേന്ദ്ര കമ്മിറ്റി ഉടൻ തീരുമാനമെടുക്കുമെന്നും അറിയി പ്പിൽ പറയുന്നു

ജോസഫ് ഇന്ന് കോൺഗ്രസ് നേതൃത്വവു മായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തും പ്രശ്ന പരിഹാരത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ജോസഫ് കോൺഗ്രസ് നേതാക്കളെ സമീപി ക്കുകയായിരുന്നു പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവ രുമായാണ് ഇന്നത്തെ ചർച്ച ഇന്നലെ പാലാ ബിഷപ്പുമായി പി

ജോസഫ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സംശയ പരിഹാരത്തിന് പത്ത നംതിട്ട ജില്ലയിൽ ആറ് വോട്ടർ സഹായ വിജ്ഞാന കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു പത്തനംതിട്ട കലക്ട്രേറ്റിലും തിരുവല്ല ആറന്മുള കോന്നി റാന്നി അടൂർ താലൂക്ക് ഓഫീസുകളിലുമാണ് വോട്ടർ സഹായ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്

ഭരണകൂടം നഗരത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു തിരഞ്ഞെടുപ്പ് ബോധവത്കരണ വിഭാഗം സ്വീപിന്റെ നേതൃത്വത്തിലായിരുന്നു കൂട്ടയോട്ടം

ഇടുക്കി രൂപതയിലെ പള്ളികൾക്കുനൽകിയ സർക്കുലറിലാണ് ബിഷപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ജനങ്ങൾക്ക് അറിയാമെന്ന് സർക്കുലറിൽ പറയുന്നു

നിശ്ചിത സമയത്തിനകം ആസ്തി ബാധ്യതാ വിവരം സമർപ്പിക്കാതിരുന്നതിനാണ് നടപടി

എസ് എസ് എൽ സി പരീക്ഷ ഇന്ന് ഉച്ചകഴിഞ്ഞ് ആരംഭിക്കും

ഡൽഹി ഫിറോസ് ഷാ കോട്ലാ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് മത്സരം

അഞ്ച് മത്സര പരമ്പര്യിൽ രണ്ടുവീതം ജയത്തോടെ ഇരുടീമുകളും ഒപ്പത്തിനൊപ്പമാണ്

ഞായറാഴ്ച മുംബൈയിൽ ബംഗലുരു എഫ് സി യെ അവർ നേരിടും

് ് കേരള ബാങ്ക് രൂപീകരണത്തിന് റിസർവ്വ് ബാങ്ക് മുന്നോട്ടുവെച്ച വ്യവസ്ഥകൾ പൂർത്തീകരിക്കാൻ കേരളം നടത്തിയ ശ്രമങ്ങളിൽ റിസർവ്വ് ബാങ്ക് സംതൃപ്തി അറിയിച്ചു

ഇവയുടെ സർവ്വീസ് അടിയന്തരമായി നിർത്തിവെക്കാൻ ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകി അഞ്ചുമാസത്തിനുള്ളിൽ ഇത്തരം വിമാനങ്ങൾ ഇന്തോനേഷ്യയിലും എത്യോപ്യയിലും തകർന്നു വീണതിനെ തുടർന്നാണ് നടപടി സുരക്ഷാസംവിധാനങ്ങൾ കർശനമായി പരിശോധിച്ച് കുറവുകൾ പരിഹരിച്ചാൽ മാത്രമേ ഇവ വീണ്ടും ഉപയോഗി ക്കുവാൻ അനുവദിക്കൂ

ഇടുക്കി മറയൂർ പഞ്ചായത്തിലെ അഞ്ചുനാട്ടാൻ പാറയിൽ കാട്ടുതീ പടർന്നു വനംവകുപ്പിന്റെ വാറ്റിൽ പ്ലാന്റേഷനിലേക്ക് തീ എത്താ തിരിക്കാൻ അധികൃതർ ശ്രമിച്ചുവരികയാണ് കഴിഞ്ഞ സീസണിൽ ഏറ്റവും അധികം കുറിഞ്ഞിപ്പൂക്കൾ വിരിഞ്ഞ പ്രദേശത്തെ പുൽമേട്ടിലാണ് കാട്ടുതീ പടരുന്നത്

കൊച്ചി പാലച്ചുവടിൽ യുവാവ് കൊല്ലപ്പെട്ട കേസിൽ പൊലീസ് ആറു പേരെ കൂടി അറസ്റ്റ് ചെയ്തു

് ഇന്നു മുതൽ മൂന്നു ദിവസം ഷൊർണ്ണൂർ തിരുവനന്തപുരം ഷൊർണ്ണൂർ വേണാട് എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിലെ ത്താതെയായിരിക്കും സർവ്വീസ് നടത്തുകയെന്ന് റെയിൽവെ അറിയിച്ചു

സൌത്ത് സ്റ്റേഷനിലെ അറ്റകുറ്റപ്പണികളെ തുടർന്നാണ് നടപടി